മുന്നണികൾ ആത്മവിശ്വാസത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

സുപ്രധാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇന്ത്യയിലെത്തി

ട്രേഷൻ സഹായ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ആരോഗൃ മന്ത്രി കെ

മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്

വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരെഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി

ഇത് തെരെഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റു നോക്കുന്നത് കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളിൽ പകുതിയിലും മത്സരിക്കുന്ന പുതുമുഖങ്ങളിലാണ് ഐക്യമുന്നണിയുടെ പ്രതീക്ഷ

സംസ്ഥാന ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്ടോരാട്ടമാണ് ഇത്തവണ തലസ്ഥാനത്തെ നേമത്തും കഴക്കൂട്ടത്തും നടന്നത്

തുടർഭരണം പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ പ്രതീക്ഷയ്ക്ക് അനുസൃതമാണെന്ന് എൽ ഡി എഫും യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് യു ഡി എഫും വ്യക്തമാക്കുന്നു എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിലും വലിയ മുന്നേറ്റമാണ് എൻഡിഎ പ്രതീക്ഷിക്കുന്നത്

നാലര ലക്ഷത്തിലധികം തപാൽ ബാലറ്റുകൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്

അസ്സം നിലനിർത്താനാവുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി

രാവിലെ എട്ടര മുതൽ അ് മണിക്കൂർ ഇടവിട്ട് പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ പ്രക്ഷേപണം ചെയ്യും

ലാബുകൾ പരിശോധനയ്ക്ക് വിസ്റ്മ്മതിച്ചാൽ നിയമനടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി രണ്ടാമത്തെ ഡോസ് ലഭിക്കില്ലെന്ന ആശങ്ക് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വാക്സിനേഷൻ കേന്ദ്രങ്ങൾ രോഗവ്യാപന കേന്ദ്രങ്ങളാകാതിരിക്കാൻ ശ്ർദ്ധിക്കണം വാക്സിൻ നിർമാതാക്കളുമായി ചിർച്ച് തുടരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ആളുകൾ കൂട്ടം കൂടരുതെന്നും ആഹ്ലാദപ്രകടനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

വിമാന മാർഗം ഹൈദരാബാദിലാണ് വാക്സിൻ എത്തിച്ചത്

കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ തുടർച്ചയാണ് വാക്സിന്റെ വരവെന്ന് റഷ്യൻ അംബാസ്സഡർ നിക്കൊളായ് കുദാഷെവ് പറഞ്ഞു

വാക്സിനേഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്യുന്നതിൽ വയോജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് രജിസ്ട്രേഷൻ കേന്ദ്രങ്ങൾ ആവിഷ്ക്കരിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ ജില്ലാ ഓഫീസുകളിൽ പ്രവർത്തിച്ചുവരുന്ന വയോക്ഷേമ കോൾ സെന്ററിനോടൊപ്പമ്യുണ് വാക്സിനേഷൻ രജിസ്ട്രേഷൻ സഹായകേന്ദ്രം ആരംഭിക്കു്വാൻ തീരുമാനിച്ചിട്ടുള്ളത്

വിജനമായ റോഡും ആളുകൾ അധികമില്ലാത്ത നഗരവും ജനങ്ങൾ നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്നതിന്റെ സൂചനയായി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ

നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആഹ്ഗാദപ്രകടനങ്ങളോ കൂടിച്ചേരലുകളോ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തോമസ് ഐസക് കോവിഡ് വ്യാപനത്തിന്റെ ആരംഭത്തിൽ സർക്കാർ ജീവനക്കാരുടെ മാറ്റിവെച്ച ശമ്പളത്തിന്റെ ആദ്യഗഡു ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ഡോ തോമസ് ഐസക് ജീവനക്കാർക്ക് സമ്മതമെങ്കിൽ ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിൽ സംഭാവനയായി നൽകാവുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഒരുമാസത്തെ ശമ്പളമാണ് മാറ്റിവെച്ചത്

കേസുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ അരവിന്ദ്രാക്ഷനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു